എസ് ടി പ്രാബലൃത്തിൽ വന്നതിനു ശേഷം നികുതിദായകരുടെ എണ്ണം ഇരട്ടി ആയതായി കേന്ദ്ര ധനമന്ത്രാലയം

യിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതായി ധനമന്ത്രാലയം ഭവന നിർമ്മാണ മേഖലയിലും വലിയ ഇളവുകളാണ് ചരക്കുസേവന നികുതിക്ക് കീഴിൽ ലഭ്യമാക്കിയിരിക്കുന്നത്

രോഗികളുടെ എണ്ണവും രോഗമുക്തരാകുന്നവരുടെ എണ്ണവും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ വർധിച്ചു വരികയാണ് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ നയങ്ങൾ ഫലപ്രദമായി നടപ്പാക്കിയതിലൂടെയാണ് ഇത് സാധ്യമായതെന്നും മന്ത്രാലയം വ്യക്തമാക്കി

രോഗ ബാധിതരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ

ഇന്നലെ മാത്രം നാലായിരത്തോളം പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്

കൊറോണ വൈറസിനെതിരായ ആന്റിബോഡികൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന പ്പാസ്മ വേഗത്തിൽ രോഗമുക്തി നേടാൻ സഹായിക്കും എന്നാണ് കരുതപ്പെടുന്നത്

ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ച് ്സംസ്ഥാന വ്യാപകമായി നടത്തി വന്ന സമരം പിൻവലിച്ച വൈദ്യ സമൂഹത്തിന് അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി നഞ്ചൻഗുണ്ടിൽ ഡോക്ടർ ആത്മഹത്യ ചെയ്തതിനെ തുടർന്നാണ് ഡോക്ടർമാർ സമരം പ്രഖ്യാപിച്ചത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധിപ്പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു

നോട്ട് നിരോധനം ചരക്ക് സേവന നികുതി പോലുള്ള ചരിത്രപരമായ തീരുമാനങ്ങൾ ജെയ്റ്റ്ലി ധനമന്ത്രി ആയിരിക്കെയാണ് രാജ്യത്ത് നടപ്പാക്കിയത് അടിയന്തിരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഷ്ഠിച്ച അദ്ദേഹം വി പി സിംഗ് മന്ത്രിസഭാ കാലത്ത് അഡിഷണൽ സോളിസിറ്റർ ജനറൽ ആയും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തൂന്റെ പ്രിയ സുഹൃത്തിന്റെ അഭാവം ഏറെ വേദന ഉളവാക്കുന്നത്രണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അഭിപ്രായപ്പെട്ടു ജയ്റ്റ്ലി യുടെ ബൌദ്ധിക ജ്ഞാനവും നിയമപരമായ തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കാനുള്ള കഴിവും മികച്ച വൃക്തിത്വവും നിസ്തുലമായിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിച്ചു കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ നിർമല സീതാരാമൻ സ്മൃതി ഇറാനി മുക്താർ അബ്ബാസ് നഖ്വി തുടങ്ങിയവരും അരുൺ ജയറ്റ്ലിക്ക് ആദരാഞ്ജലികളർപ്പിച്ചു

നേതൃത്വ പ്രശ്നവും രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ അറിയിച്ചു

പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തിൻമേലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്

പ്രതിപക്ഷത്തെ വി

തിരുവനന്തപുരം വിമാനത്താപ്പള നടത്തിപ്പ് സംബന്ധിച്ച പ്രമേയവും ധനകാര്യബില്ലും സഭ ഇന്നീ പാസാക്കി തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദ്യനി ധഗൂപ്പിന് വിട്ട കേന്ദ്രസർക്കാർ നടപടി പിൻവലിക്കണമെന്ന് ് നിയമസഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സ്ട്രസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിക്കാതെയാണ് തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറിയതെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം സ്പീക്കർക്കെതിരായ പ്രമേയവും പരിഗണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല ഒരു ദിവസത്തേക്ക് മാത്രമാണ് സഭ ചേരുന്നത്

തിരുവനന്തപുരം വിമാനത്താവള വികസനത്തിനെതിരായ പ്രമേയ ചർച്ചയിൽ ഒ രാജഗോപാൽ എം

എയെ സംസാരിക്കാൻ അനുവദിക്കാതിരുന്നത് ജനാധിപത്യവിരുദ്ധമാണെന്ന് അദ്ദേഹം ആരോപിച്ചു

എഫിനു വേണ്ടി എം

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വൈകിട്ട് നാല് വർെ നിയമസഭാ മന്ദിരത്തിലാണ് വോട്ടെടുപ്പ് ആന്റിജൻ പരിശോധനയിൽ രോഗബാധ കണ്ടെത്തുന്നവർക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നു വരുന്നവർക്കും വോട്ടു ചെയ്യാൻ പ്രത്യേക ബൂത്ത് ഒരുക്കിയിട്ടുണ്ട് വൈകിട്ട് അഞ്ചരയോടെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാം

സർക്കാറിന്റെ പുതിയ വാങ്ങൽ നയം അനുസരിച്ചുളള പരിഷ്കരിച്ച ടെണ്ടർ ഒരാഴ്ചയ്ക്കുള്ളിൽ ക്ഷണിക്കുമെന്നും റെയിൽവേ അറിയിച്ചു ട്രെയിൻ കോച്ചുകളുടെ നിർമാണത്തിനായി ക്ഷണിച്ച ടെണ്ടർ കഴിഞ്ഞ വെള്ളിയാഴ്ച റദ്ദാക്കിയ സാഹചര്യത്തിലാണ് റയിൽവേയുടെ വിശദീകരണം

പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളിൽ റെയിൽവേയും പങ്കാളിത്തം വഹിക്കും

ഇതനുസരിച്ച ല്ലഭിച്ച ടെൻഡറുകളുടെ സാങ്കേതികവശങ്ങൾ വിലയിരുത്തുറിപ്പോൾ സാമ്പത്തികമായി ഉണ്ടാകാവുന്ന ലാഭം ടെൻഡർ ക്ടമ്മിറ്റിയുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ടെണ്ടർ റദ്ദാക്കൻ സമിതി ശുപാർശ ചെയ്തത്

ശാരീരിക അകലം മന്ത്രാലയം ചിത്രീകരണ സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനവും മടക്കവും ശുചിത്വം ജീവനക്കാരുടെ സുരക്ഷ അടുത്തിടപഴകുന്നത് കുറയ്ക്കൽ യാത്രാ അനുബന്ധ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കൽ രോഗ നിരീക്ഷണം എന്നിവ ഉൾപ്പെടെ ആരോഗൃ മന്ത്രാലയത്തിന്റെ മാർഗനിർദേശങ്ങൾ മുന്നിലുള്ള പാലിക്കണം

കേന്ദ്ര മാർഗ്ഗ നിർദ്ദശങ്ങൾക്ക് അനുസൃതമായി സംസ്ഥാന സർക്കാരുകൾക്കും പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാം

അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കഴിഞ്ഞ മേയിൽ ആണ് ആണവോർജ്ജനിലയം അടച്ചത്